സംസ്ഥാനത്ത് പോളിദ്ഗ് ്ഗുതമാനം കൂടുതൽ കണ്ണൂർ ജില്ലയിൽ കുറവ് ൃഷ്ത്തന്ംതിട്ടയിൽ നേമം വട്ടിയൂർക്കാ്വ് കഴക്കൂട്ടംപാലക്കാട് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ മികച്ചു പോളിംഗ് ഭരണത്തുടർച്ചയെന്ന് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ യുഡി എഫ് ഐതിഹാസിക വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് രണ്ട് മുന്നണികൾക്കും തിരിച്ചടിയെന്ന് കെ സുരേന്ദ്രൻ

ബംഗാളിലെയും അസമിലെയും പോളിംഗ് അവസാനിച്ചു

അതേസമയം വയനാട് ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങൾ അടക്കം ഒമ്പത് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് വൈകിട്ട് ആറ് മണിക്ക് അവസാനിച്ചു മലയോര മേഖലകളിൽ ഇന്ന് വൈകുന്നേരം വിവിധയിടങ്ങളിൽ ഉണ്ടായ കനത്ത മഴ പോളിംഗിനെ നേരിയ തോതിൽ ബാധിച്ചു തലസ്ഥാനത്ത് കാട്ടായിക്കോണത്തും കണ്ണൂരിലെ ചില സ്ഥലങ്ങളിലും രാഷ്ട്രീയപ്രവർത്തകർ തമ്മിലുണ്ടായ ഉന്തും തള്ളും ഒഴിച്ചാൽ സംസ്ഥാനത്ത് പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു

അവസാന ഒരു മണിക്കൂറിൽ കോവിഡ് രോഗികൾക്കും പ്രാഥമിക സമ്പർക്കപട്ടികയിൽ ഉള്ളവർക്കും വോട്ട് രേഖപ്പെടുത്താൻ അവസരം ഒരുക്കിയിട്ടുണ്ട്

കൊല്ലം ഇൻട്രോ ലൈവ് കശുവണ്ടിത്തൊഴിലാളികളുടെ നാടായ കൊല്ലത്തെ പോളിംഗ് ബൂത്തുകളിൽ രാവിലെ മുതൽ വോട്ടർമാരുടെ ്നീണ്ട നിരയാണ് കാണപ്പെടുന്നത്

ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത് ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ നമ്മോടൊപ്പം ചേരുന്നു

ജില്ലയിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ ചേരുന്നു

തൃശൂർ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്

ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മികച്ച പോളിംഗ് നടക്കുന്നു

ന്ദ്രോർത്ത് വടകര ബേപ്പൂർ കുറ്റ്യാടി കുന്നമംഗലം തുടങ്ങി പ്രശ്ക്ത്മായ മത്സരം നടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും മികച്ച പ്പോളിംഗാണ് രേഖപ്പെടുത്തിയത് ഏറ്റവും പുതിയ കണക്കുകളുമായി ജില്ലാ പ്രതിനിധി നസീർബാബു ചേരുന്നു

പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ ആലിമുത്ത് ചേരുന്നു

മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് വൈകിട്ട് ആറ് മണിയോടെ വോട്ടെടുപ്പ് അവസാനിപ്പിച്ചത് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്

കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങ്ളുമായി ആകാശവാണി പ്രതിനിധി കെ

ജെ